ത്തിനായി ചാമ്പ്യൻസ് സാങ്കേതിക പ്ലാറ്റ്ഫോമിന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി തുടക്കം കുറിച്ചു

മുന്നറിയിപ്പ് ചുഴലിക്കാറ്റ് സാഹചര്യം പ്രധാനമന്ത്രി വിലയിരുത്തി

ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്

രാജ്യത്തെ ചെറുകിട ഇടത്തര സംരംഭൂങ്ങളുടെ പ്രോത്സാഹന ത്തിനായി ചാമ്പ്യൻസ് സാങ്കേതികൃപ്ലിറ്റ്ഫോമിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു ചെറുകിട സംരംഭങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് പ്രധാന ലക്ഷ്യം

രാജ്യത്തിന്റെ സമ്പദ്വൃവസ്ഥയെ വളർച്ചയുടെ പാതയിലേയ്ക്ക് തിരികെ എത്തിക്കുകയാണ് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യമെന്ന് ശ്രീ

കാർഷിക മേഖലയിലും ചെറുകിട ഇടത്തരം വൃവസായ മേഖലയിലും കൊണ്ടു വന്ന പരിഷ്കാരങ്ങൾ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലെ മികവ് രാജ്യത്തിന്റെ യശസ്സ് വർദ്ധിപ്പി ച്ചുതായും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു

ഇരു സംസ്ഥാനങ്ങളിലും കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകി യിട്ടുണ്ട് നിസർഗ ചുഴലിക്കാറ്റ് സംബന്ധിച്ച സാഹചര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിലയിരുത്തി സാധ്യമായ എല്ലാ മുൻ കരുതലുകളും സുരക്ഷാ നടപടികളും സ്വീകരിക്കാൻ ജനങ്ങളോട് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു

മുംബൈയിൽ ചെറിയ രീതിയിൽ മഴ ആരംഭിച്ചു

കേന്ദ്രം ആവ്ശൃമായ എല്ലാ സഹായങ്ങളും നൽകുമെന്ന് പ്രധാന്മീന്ത്രി ഉറപ്പ് നൽകി ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ദേശീയ ദുരന്ത നിവാരണ സേന യുടെ സംഘങ്ങളെ നിയോഗിച്ചതായി ദേശീയ ദുരന്ത നിവാരണ സേന ഡയറക്ടർ ജനറൽ എസ്

കടലിൽ അകപ്പെട്ട മത്സ്യ ത്തൊഴിലാളികളെ രക്ഷപെടുത്തുന്നതുൾപ്പെടെയുള്ള മുന്നൊരുക്കങ്ങൾ നടത്തണമെന്ന് ശ്രീ രാജീവ് ഗൌബ സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ചു കോവിഡ് രോഗികൾ ക്ക് പ്രത്യേക ശ്രദ്ധ നൽകണം അവശ്യ വസ്തുക്കൾ ശേഖരിച്ച് വയ്ക്കണം ആവശ്യമായ സ്ഥലങ്ങളിൽ എസ്എംഎസ് സന്ദേശങ്ങൾ മുന്നറിയിപ്പായി നൽകണം

ഇതുവരെ അഞ്ച് പേരാണ് മരിച്ചത്

തിരുവനന്തപുരത്ത് കോവിഡ് ബാധയെ തുടർന്ന് ഒരാൾ കൂടി മരിച്ചു രോഗം സ്ഥിരീകരിച്ചതിൽ പാലക്കാട് ജില്ലയിലെ ഒരു ആരോഗ്യ പ്രവർത്തകയും ഉൾപ്പെടുന്നു

മലപ്പുറം ജില്ലയിലെ ആനക്കയം പുതിയ ഹോട്സ് സ്പോട്ടായി

അമേരിക്കയിൽ രോഗബാധിതരുടെ എണ്ണം പതിനെട്ടര ലക്ഷം കവിഞ്ഞു

ഇതാണ് ചൈനീസ് സൈനികർ ഇന്ത്യൻ അതിർത്തി കടന്നുവെന്ന തരത്തിൽ തെറ്റായി വ്യാഖ്യാനിച്ചതെന്നും പി

സംസ്ഥാനത്തെ വിമാനത്താവള ങ്ങളിലേക്ക് വന്നിറങ്ങുന്ന ആളുകളെ പരിശോധിക്കാനുള്ള ക്രമീകരണങ്ങൾ അതിന്റെ പരമാവധി ഉപയോഗത്തിലാണ് കൂടുതൽ വിമാനങ്ങൾ വന്നാൽ യാത്രക്കാരെ പരിശോധി ക്കാനുള്ള സംവിധാനങ്ങളൊരു ക്കാൻ സംസ്ഥാന സർക്കാ രിന് സാധിക്കില്ലെന്നും കേരളം അറിയിച്ചിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് ചാർട്ടേഡ് വിമാനങ്ങൾക്കടക്കം നിയന്ത്രണം വേണമെന്ന് സംസ്ഥാനമയച്ചു കത്തിൽ ആവശ്യപ്പെട്ടത്

ബരാക് ബാലിയിലാണ് ഇന്നലെ മണ്ണിടിഞ്ഞത് ഇതോടെ ട്രെയിൻ സർവ്വീസ് നിർത്തി

മരിച്ചവരുടെ കുടുംബത്തെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അനുശോചനമറിയിച്ചു മരിച്ചവരുടെ ആശ്രിതർക്ക് നാല് ലക്ഷം രൂപ വീതം സഹായ ധനം നൽകി

എറണാകുളം ഇടുക്കി തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത് പ്രധാന നദികളിൽ ജല നിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്ക ണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ വിഭാഗം മുന്നറിയിപ്പ് നൽകി

ആർ ടി സി അന്തർജില്ലാ ബസ് സർവീസുകൾ ഇന്ന് പുനഃരാരംഭിക്കുന്നു ബസുകളിൽ പഴയ ടിക്കറ്റ് നിരക്ക് തന്നെയായിരിക്കുമെന്നും ഗതാഗത മന്ത്രി ഏ

കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ജില്ലാ പോലീസ് മേധാവിമാർ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു

ഇത് തെറ്റായ വിവരമാണ്